ഗവൺമെന്റിന്റെ ശ്രമങ്ങൾക്ക് കേന്ദ്രം എല്ലാ പിന്തുണയും നൽകുമെന്ന് പ്രധാനമന്ത്രി കേരള സന്ദർശനം പൂർത്തിയാക്കി ്പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാല ദ്വീപില്ലെത്തി

കാലവർഷം കേരള് തീരത്തെത്തിയതായി കേന്ദ്ര ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കനത്ത മഴയ്ക്ക് സാധൃത വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം

അർധരാത്രി മുതൽ

കിംങ്സ് കപ്പ് ഫുട്ബോളിൽ ഇന്തൃയ്ക്ക് വെങ്കലം

കേന്ദ്രഗവൺമെന്റ് ആവിഷ്കരിച്ച ആരോഗ്യ പദ്ധതിയായ ആയുഷ്മാനിൽ കേരളം ചേർന്നിട്ടില്ലെന്നും അതിനാൽ പദ്ധതിയുടെ സഹായം കേരളത്തിന് കിട്ടുന്നില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേരള സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാലിദ്വീപിലെത്തി വിശദാംശങ്ങളുമായി റിനൽ ജോസഫ്

ഗുരുവായൂർ ക്ഷേത്രസന്ദർശനത്തിനുശ്രേഷം ബി ജെ

തിരഞ്ഞെടുപ്പിലെ വിജയം മ്മിത്രിമല്ല രാഷ്ട്ര സേവനത്തിനാണ് ബി ജെ

മൃഗസംരക്ഷണം മത്സ്യബന്ധനം എന്നീ മേഖലകളിൽ സമഗ്രവികസനം കേന്ദ്ര ഗവൺമെന്റ് ലക്ഷ്യമിടുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

പരിപാടിയ്ക്കുശേഷം ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി മാലദ്വീപിലേക്ക് പോയി വിദേശ പൌരനുള്ള മാലദ്വീപിന്റെ പരമോന്നത ബഹുമതിയായ നിഷാൻ ഇസുദ്ദീൻ ശ്രീ

മാലദ്വീപ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ശ്രീലങ്കയിലെത്തും

ശൈലജ ആയുഷ്മാൻ ഭാരത് പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നില്ലെന്നും ജനങ്ങൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുന്നില്ലെന്നുമുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗം തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി കെ

കേന്ദ്രപദ്ധതി അതുപോലെ കേരളത്തിൽ നടപ്പാക്കാൻ കഴിയുമായിരുന്നില്ല പദ്ധതി അതേപടി നടപ്പാക്കിയാൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇതിൽനിന്നും പുറത്താകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിലവിദ്ധൂള്ള എല്ലാ ഇൻഷുറൻസ് പദ്ധതികളെയും ഉൾക്കൊള്ളിച്ചുക്ടൊണ്ട്ട് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന പേരിലാണ് പ്രദ്ധ്തി നടപ്പാക്കിയത് വസ്തുതകൾ മനസ്സിലാക്കി പ്രിധാന്മന്ത്രി ഇത് സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റുമെന്ന് പ്രപിതീക്ഷിക്കുന്നതായും ആരോഗൃമന്ത്രി പറഞ്ഞു ആരോഗ്യ രംഗ്രിത്ത് കേരളം മികച്ച പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് ആരോഗ്ലീക്യമ്പ്രി കെ

ശൈലജ പറഞ്ഞു

നിപ രോഗിയായ വിദ്യാർത്ഥിയിൽ വൈറസിന്റെ സാന്നിദ്ധ്യം കുറയുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ രക്തവും സ്രവങ്ങളും പൂനയിൽ നിന്നുള്ള വിദഗ്ധ സംഘം വീണ്ടും പരിശോധിക്കുമെന്ന് ആരോഗ്യ മന്ത്രി അറിയിച്ചു അതേസമയം ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥിയുടെ നില മെച്ചപ്പെട്ടതായി ആശുപത്രി അധികൃതർ അറിയിച്ചു ക്യാൻസർ പോലീസ് കേസ് സ്വകാര്യ ലാബിന്റെ തെറ്റായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ സ്വദേശിയായ യുവതിക്ക് കാൻസറിനുള്ള കീമോതെറാപ്പി നൽകിയ സംഭവത്തിൽ കോട്ടയം മെഡിക്കൽ കോളജ് ആശുപത്രിയിലെ രണ്ട് ഡോക്ടർമാർക്കെതിരെയും രണ്ട് സ്വകാര്യ മെഡിക്കൽ ലാബുകൾക്കെതിരെയും ഗാന്ധിനഗർ പൊലീസ് കേസെടുത്തു

സ്വകാര്യ ലാബിൽ നൽകിയ്ടിരുന്ന സാമ്പിൾ മടക്കി വാങ്ങി നടത്തിയ പരിശോധനയിലും ക്യാൻസർ ഇല്ലെന്നായിരുന്നു ഫലം

അവ പരിഹരിക്കാനാകുമെന്നും അതിന് താൻ മുമ്പന്തിയിൽ ഉണ്ടാകുമെന്നും ശ്രീ

വയനാട്ടിലെ മാനന്തവാടിയിൽ റോഡ് ഷോക്കിടെ ഗാന്ധി പാർക്കിൽ വോട്ടർമാരോട് നന്ദി പറയുകയായിരുന്നു അദ്ദേഹം വയനാടിനും കേരളത്തിനാകെയും വേണ്ടി പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ്

വൈകുന്നേരത്തോടെ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ റോഡ്ഷോ സമാപിച്ചു

ഇന്ന് രാവിലെ സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രലിൽ നടന്ന സ്ഥാനാരോഹണ ശൂശ്രൂഷകൾക്ക് മേജർ ആർച്ച് ബിഷപ് കർദ്ദിനാൾ മാർ ബസേലിയോസ് ക്ലിമ്മീസ് കാതോലിക്കാ ബാവ മുഖ്യകാർമികത്വം വഹിച്ചു തുടർന്ന് അനുമോദന സമ്മേളനവും നടന്നു

തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കേരള തീരത്തിലെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം ഡയറക്ടർ അറിയിച്ചു

കേരളത്തോടൊപ്പം തമിഴ്നാടിന്റെ തെക്കൻ ഭാഗങ്ങൾ ലക്ഷദ്വീപ് മാലദ്വീപ് എന്നിവിടങ്ങളിലും മൺസൂൺ എത്തിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അടുത്ത മൂന്ന് ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു

ഈ ദിവസങ്ങളിൽ താലൂക്ക്തലത്തിൽ കൺട്രോൾ ് റൂമുകൾ ആരംഭിക്കാൻ സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റി പ്പിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി മഴയുമായി ബന്ധപ്പെട്ട് ന്ദേരിക്ക്ത് പ്രഖ്യാപിച്ചിരുന്ന റെഡ് അലേർട്ട് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ് കേന്ദ്രം പിൻവലിച്ചിട്ടുണ്ട്

ട്രോളിങ് നിരോധനം ഫലപ്രദമായും സമാധാനപരമായും നടപ്പാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ് കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്തുനിന്നും ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ

മൂന്നാം സ്ഥാനക്കാർക്കായുള്ള പോരാട്ടത്തിൽ ആതിഥേയരായ തായ്ലൻഡിനെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് തായ്ലൻഡിനെതിരെ ഇന്ത്യ നേടുന്ന തുടർച്ചയായ രണ്ടാം ജയമാണിത്

ഇംഗ്ലണ്ടിന്റെയും ബംഗ്ലാദേശിന്റെയും മൂന്നാം മത്സരമാണിത് ഇരുപർും ഓരോ ജയവും തോൽവിയും നേരിട്ടിട്ടുണ്ട്

അതെസമയം ന്യൂസിലൻഡ് അഫ്ഗാനിസ്ഥാൻ പോരാട്ടത്തിന് ടോണ്ടൻ കൌണ്ട് ഗ്രൌണ്ടിൽ വൈകിട്ട് ആറിന് തുടക്കമായി ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടം നാളെ നടക്കും